മതത്തിനും ജാതിക്കും വർണത്തിനും അതീതമായി ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു

മതത്തിനും ജാതിക്കും വർണത്തിനും അതീതമായി ഇന്ത്യ ഒറ്റ രാജ്യമാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു

ശ്രീനാരായണ ഗുരു ജന്മം കൊണ്ട് ഹിന്ദുവായിരുന്നെങ്കിലും ഒരു മതത്തോടും അദ്ദേഹം പക്ഷപാതം കാണിച്ചിരുന്നില്ലെന്ന് ഉപ രാഷ്ട്രപതി പറഞ്ഞു ഗുരു എല്ലാ മതങ്ങളെയും തുല്യമായി പരി ഗണിക്കുകയും ആദരിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു ജാതിസമ്പ്രദായത്തെയും ജനങ്ങളെ പരസ്പരം പോര ടിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ വിഘടനവാദ പ്രവണതകളെയും നാരായണ ഗുരു ധൈര്യപൂർവം നിരാകരിച്ചു എല്ലാമതങ്ങളും ഒന്നാ ണെന്ന സ്വാമിജിയുടെ ഉപദേശം മനുഷ്യർ എല്ലായ്പ്പോഴും ഓർക്ക ണം മതമേതായാലും ജനങ്ങൾ പുരോഗതി കൈവരിക്കണം എല്ലാ വരും ഒരമ്മയിൽ നിന്ന് പിറവിയെടുത്തവരാണ് അതിനാൽ എല്ലാ വരും ഒരേ ജാതിയിൽപ്പെട്ടവരാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

മനുഷ്യർക്കി ടയിൽ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ വേർതിരിവി ല്ലെന്ന് പ്രഖ്യാപിച്ച ഗുരുആഗോള സമാധാനവും സഹവർത്തി ത്വവും സമ്പദ് സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് അക്രമങ്ങ ളിൽ നിന്നും മത സംഘർഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ജന ങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അദൈത സിദ്ധാന്ത ത്തിന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ജീവിതത്തിന്റെ ശക്തവും പ്രായോഗിക വുമായ തതചിന്തയ്ക്ക് രൂപം നൽകിയെന്നും ഉപരാഷ്ട്രപതി അഭി പ്രായപ്പെട്ടു

കേന്ദ്രസഹമന്ത്രി വി

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശ്രീനാരായണ ധർമ്മ സംഘം പ്രസിഡണ്ട് സ്വാമി വിശുദ്ധാനന്ദ തുടങ്ങിയവർ സംബന്ധിച്ചു് അൽപ്പംമുമ്പ് തോന്നയ്ക്കൽ സായിഗ്രാമത്തിലെത്തിയ ഉപ രാഷ്ട്രപതി സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് വൈകിട്ട് നാലിന് മാർ ഇവാനിയോസ് ക്യാംപസിൽ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും അഞ്ചര യോടെ ഉപരാഷ്ട്രപതി ഹൈദാരാബാദിലേക്ക് തിരിച്ചു പോകും ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി തിരുവനന്തപു രത്ത് രാവിലെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലെത്തിയ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദേശ കാര്യസഹമന്ത്രി വി മുരളീധരൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മേയർ കെ ശ്രീകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തിരക്ക് കണക്കി ലെടുത്ത് കോട്ടയത്തിനും കൊച്ചുവേളിക്കുമിടയിൽ ഇന്നുമുതൽ ബുധനാഴ്ച വരെ പ്രത്യേക പാസഞ്ചർ ട്രെയിൻ ഓടിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നാളെ ചേരും ലോക്സഭയിലും നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ്ഗ സംവരണം പത്തു വർഷത്തേക്ക് കൂടി ദീർഘിപ്പി ക്കുന്ന പ്രമേയം അംഗീകരിക്കാനാണ് സമ്മേളനം ചേരുന്നത്

ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കും മുമ്പ് രാജ്യത്തെ പകുതിയിൽ കുറയാത്ത നിയമസ ഭകൾ പ്രമേയം മുഖേന സ്ഥിരീകരിക്കണം ഇതിനു വേണ്ടിയാണ് സംസ്ഥാന നിയമസഭ ചേരുന്നത് പൌരത്വ നിയമഭേദഗതി വിജ്ഞാപനം ചെയ്യരുതെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്ന് പ്രതി പക്ഷം അഭ്യർത്ഥിച്ചു നാളെ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചചെയ്യണമെന്നാവശ്യപ്പെട്ട് വി

സതീശൻ സ്പീക്കർക്ക് നോട്ടീസ് നൽകി

പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസും സി

എമ്മും ശ്രമിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ മത്സരിക്കുകയാണെന്ന് അദ്ദേഹം ആരോ പിച്ചു

ജെ പി ആലപ്പുഴ ജില്ലാ കമ്മറ്റി സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം യോജിച്ച സമരത്തിന്റെ പേരിൽ കെ

സി പ്രസിഡണ്ട് മുല്ല പ്പള്ളി രാമചന്ദ്രനെ പരോക്ഷമായി വിമർശിച്ചും പ്രതിപക്ഷനേതാ വിനെ പിന്തുണച്ചും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ യോജിച്ച നീക്കങ്ങൾക്ക് സഹായകമാകില്ലെന്ന് കോൺഗ്രസ് നിയമസഭാക ക്ഷി ഉപനേതാവ് കെ

രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിനോ യു ഡി എഫിനോ മുഖ്യമന്ത്രിയുടെയോ സി

എമ്മിന്റെയോ ഉപദേശം ആവശ്യമില്ലെന്നും പ്രതിപക്ഷനേതാവ് സർവ്വകക്ഷിയോഗത്തിൽ പങ്കെടുത്തത് കെ

സി സി പ്രസിഡന്റിന്റെ അറിവോടുകൂടി തന്നെയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ ഉദ്ദവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് വിപുലീകരിക്കും ശിവസേനയിൽ നിന്നും എൻ

വൈകിട്ട് മുംബൈയിലെ നിയമസഭാ മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് താക്കറെ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭാ വിപുലീകരണത്തിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

കേരഗ്രാമം പദ്ധതി മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുമെന്ന് മന്ത്രി വി

ആല പ്പുഴ അമ്പലപ്പുഴ യിൽ കേരകർഷക സംഘം സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലനട വൈകിട്ട് തുറക്കും അഞ്ചിന് മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി നട തുറന്ന് ആഴി തെളിയിക്കും അതിനു ശേഷം ഭക്തർക്ക് ദർശനം നടത്താം ഇന്ന് പൂജയുണ്ടാവില്ല

കണ്ണൂർ പയ്യന്നൂരിലെ നിർദ്ദിഷ്ട പെട്രോളിയം സംഭരണ ശാലയ്ക്കായി വയൽ വിട്ടു നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പിൻമാറണമെന്ന് കോൺഗ്രസ് നേതാവ് വി

സംഭരണശാലയ്ക്കെതിരെ കർമ്മസമിതി പയ്യന്നൂരിൽ നടത്തി വരുന്ന അനിശ്ചിത കാല സത്യാഗ്രഹത്തിന് ഐക്യദാർഡ്യം പ്രാഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തിരുവനന്തപുരം പെരുങ്കുഴിയിൽ കെ

നെടുമങ്ങാട് സ്വദേശി മനു വട്ടപ്പാറ സ്വദേശി ഉണ്ണി കല്ലുവാങ്കുഴി സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപ കടം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുസ്കാരം ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എം ടി വാസുദേവൻ നായർക്ക് സമ്മാനിക്കും ഇതോടനുബന്ധിച്ച് ഉച്ചക്ക് നടക്കുന്ന സെമിനാർ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റീസ് നഗരേഷ് ഉദ്ഘാടനം ചെയ്യും മാതൃഭൂമി സാഹിത്യപുരസ്കാരം ഇന്ന് വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ ടി പത്മനാഭൻ യു എ ഖാദറിന് സമ്മാനിക്കും

പി വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം മുകുന്ദൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമത്തിനായി ജേണലിസ്റ്റ് വെൽഫെയർ ബോർഡ് രൂപീകരി ക്കണമെന്ന് സീനിയർ ജേണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പട്ടു ആലപ്പുഴയിൽ നടന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

പരിപാടിക്ക് തുടക്കമിട്ട് നഗരസഭ സത്പതി കവാടവും മന്ദിരവും മന്ത്രി എ

മൂന്ന് ദിവസത്തെ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും ഇന്ധനവിലയിൽ നേരിയ വർധന

തുടർച്ചയായ അഞ്ചാം ദിവസ മാണ് ഇന്ധനവില വർധിക്കുന്നത്

ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ഹിമാചൽ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത് ഡൽഹിയിൽ താപനില അടുത്ത ദിവസങ്ങളിൽ പൂജ്യം ഡിഗ്രിയിലും താഴാനിടയു ള്ളതിനാൽ വെള്ളിയാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

കടുത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ റെയിൽ വ്യോമ ഗതാഗതവും താറുമാറായി

നാല് സർവീസുകൾ റദ്ദാക്കി

കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് ആറുപേർ മരിച്ചു കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കാഴ്ചതടസ്സം നേരിട്ടതാണ് അപ കടത്തിന് കാരണമായതെന്ന് പൊലീസ് പറഞ്ഞു ഡൽഹിയിൽ വായുമലിനീകരണ തോത് അതീവ ഗുരുതരാ വസ്ഥയിലാണ്

ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് പോളിംഗ്